ശതമാനത്തിലേയ്ക്ക്

ലണ്ടനിൽ നിന്നും ക്വാലാല്പ്പൂരിൽ നിന്നും വിമാനങ്ങൾ

രോഗമുക്തി

സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത

ജില്ലകളിൽ യെല്ലോ അലെർട്ട്

കൂടുതൽ വിവരങ്ങളുമായി പാർവതി

ഗൾഫ് നാടുകൾക്കു പുറമെ ലണ്ടൻ കാലാലംബൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളും എത്തുന്നുണ്ട്

അതിവ്യാപന മേഖലയിൽ ട്രിപ്പിൾ ലോക്ഡൌൺ ഉണ്ടായിരിക്കുമെന്നും ചില ക്ലസ്റ്ററുകളിൽ സൂപ്പർ സ്പ്രെഡ് സ്സ്മൂഹവ്യാപനമായിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജില്ലയില്ലെ ക്കിറ്റിക്കൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ക്വിക്ക് റെസ്പോൺസ് സംഘ്പം രൂപീകരിച്ചിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ നവ്ജ്യോത് ഖോസ അറിയിച്ചു റവന്യൂ പൊലീസ് ആരോഗൃ വിഭാഗം ഉദ്യോഗസ്ഥർ അടങ്ങിയതാണ് സംഘം

ഓഫീസുകൾ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ കാലയളവിൽ അടച്ചിടും അവശ്യ സർവീസുകൾക്ക് തടസ്സമുണ്ടാകില്ല

മൂന്നു ദിവസത്തെ നിയന്ത്രണങ്ങൾ സമ്പൂർണ ലോക്ഡൌൺ അല്ലെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചരൃമില്ലെന്നും ഉത്തർപ്രദേശ് ചീഫ് സെക്രട്ടറി ആർ

തിവാരി അറിയിച്ചു

പങ്കാളികളെ തെരഞ്ഞെടുക്കുന്ന രീതി സർവെ വിവരങ്ങൾ സംസ്ഥാനങ്ങളുടെ പട്ടികപ്പെടുത്തൽ വിവര കൈമാറ്റം നിരീക്ഷണ സംവിധാനം തുടങ്ങിയ കാര്യങ്ങളിൽ ചർച്ചയായി

ഐ സി ഡി

ഐ ടി സ്റ്റാറ്റിറ്റിക്സ് മന്ത്രാലയം തുടങ്ങിയവ ഈ മാനകങ്ങൾ പ്രകാരം വിലയിരുത്തിയതായി നിതി ആയോഗ് സി

ഇതുവരെ ലോകത്തൊട്ടാകെ അഞ്ചര ലക്ഷത്തിലധികം പേർ മരിച്ചു

അഞ്ച് ജില്ലകളിൽ യെല്ലോ അലെർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്ട് ഇടുക്കി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലെർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്

ലഡാക്കിലെ ലഫ്റ്റനന്റ് ഗവർണർ ആർ

ലഡാക്കിൽ നടപ്പാക്കുന്ന ജൽജീവൻ പദ്ധതിയുടെ പുരോഗതിയും മന്ത്രി വിലയിരുത്തി

ഇന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരും

ബി ഐ

ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കാനറാ ബാങ്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്നിവയും നീരക്കുകളിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്